സേവനങ്ങളും വർധിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കോവിഡ് സ്ഥിതി പ്രധാനമന്ത്രി അവലോകനം ചെയ്തു

അധികമായി ചികിത്സയിലുള്ളത് ഒന്നര ലക്ഷത്തോളം പേർ

പാലിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീരിന്റെ വികസനത്തിൽ പ്രതിജ്ഞാബദ്ധമെന്നും കേന്ദ്രമന്തി

കേന്ദ്രമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ

വലിയ നഗരങ്ങൾ നേരിടുന്ന പ്രതിസന്ധി കണ്ടുക്കിലെടുത്ത് കോവിഡ് പരിശോധനയും കിടക്കകളുടെയും അന്നുബന്ധ സേവനങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് പ്രധ്നിന്മന്ത്രി നിർദ്ദേശിച്ചു

ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രി പ്രധാന്റ്മന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കാബിനറ്റ് സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറി ഐസിഎംആർ ഡയറക്ടർ ജനറൽ ബന്ധപ്പെട്ട ഉന്നതാധികാരസമിതി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

പ്രധാനമന്ത്രിയുടെ നിർദേശത്തെ തുടർന്നാണ് യോഗം ചേർന്നത് യോഗത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർധൻ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ മുഖ്യമന്ത്രി ദൂരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങൾ എയിംസ് ഡയറക്ടർ തുടങ്ങിയവർ സംബന്ധിച്ചു

മൂഖ്യാവ്രണം ധരിക്കുന്നത് കോവിഡ് വ്യാപനത്തെ കാര്യമായി പ് തടയുന്നതായി വൃക്തമായതിനെ തുടർന്നാണ് നടപടി ശക്ത്മാക്കിയത്

സർക്കാറിന്റെ ടെലി മെഡിസിൻ ഹെൽപ്പ് ലൈനിൽ സന്നദ്ധ സേവനം നടത്തണമെന്ന് ഡോക്ടർമാരോട് അഭ്യർത്ഥിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി മോഹൻ

രാജ്യത്ത് കൊറോണ വ്യാപനം വർധിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിരവധി ആളുകൾ വന്നുപോകുന്ന ചന്തയിലാണ് ആദ്യ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്

നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു

വരുന്ന വർഷങ്ങളിൽ ജമ്മുവിന്റെ ഭാവിയും ചിത്രവും മാറും

കാർഷികരംഗത്തെ അഭിവൃദ്ധിക്കും രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയ്ക്കും അത് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു

കാർഷിക ഉല്പാദനം വർദ്ധിപ്പിക്കാനും ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാനും കാർഷിക ശാസ്ത്രജ്ഞർ ശ്രമിക്കണമെന്ന് ശ്രീ

രാജ്യമെമ്പാടും ഇന്ന് വിവിധ ബോധവൽക്കരണ പരിപാ്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് യോഗ വലിയ ആശ്വാസം നൽകുമെന്ന് മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ഡയറക്ടർ ആകാശവാണി വാർത്തയോട് പറഞ്ഞു

ആരാധനാലയങ്ങൾ സന്ദർശിക്കാനും പരീക്ഷകളിൽ പങ്കെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കുമാണ് ഞായറാഴ്ച ലോക്ക്ഡൌണിൽ ഇളവ് അനുവദിച്ചത്